എസ് പ്രചാരകൻ പി

വിശ്യസിച്ച് പ്രത്യയ ശാസ്ത്രത്തിന് വേണ്ടി ജിവിത്യൂ സ്മ്ർപ്പിച്ച സൈദ്ധാന്തികനെന്ന് മുഖ്യമ്പ്രിത്രി പിണറായി വിജയൻ

ബൌദ്ധിക മുഖമായ പ്പി പ്രമേശ്വരന്റെ സംസ്കാരം നാളെ ആലപ്പുഴ മുഹമ്മയില്ല വീട്ടുവളപ്പിൽ ഏത്തവാഴക്കൂല വില കുത്തനെ ഇടിഞ്ഞതോടെ ന് കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി വി

അല്പസമയത്തിനകം തുടക്കമാകും സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് സമാപിക്കും

പാലക്കാട് ജില മുന്നേറം തുടരുന്നു

ഭൌതികശരീരം ഇപ്പോൾ കൊച്ചിയിലെ ആർഎസ്എസ് പ്രാന്തകാര്യാലയത്തിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്

നാളെ ഉച്ചയ്ക്ക് ശേഷം ആല്പ്പുഴ മുഹമ്മയിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും

ഭാരതമാതാവിന്റെ അഭിമാനമായിരുന്നു അദ്ദേഹമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു സാധാരണക്കാരനെ സേവിക്കാൻ മാറ്റിവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത് ചിന്തകൾ സമൃദ്ധവും രചനകൾ ശ്രദ്ധേയവുമായിരുന്നു അദ്ദേഹവുമായി പലതവണ സംവദിക്കാൻ ഭാഗ്യം ലഭിച്ചുവെന്നും നിര്യാണത്തിൽ അനുശോചിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

വിശ്വസിച്ച പ്രത്യയ ശാസ്ത്രത്തിനുവേണ്ടി ജീവിതം സമർപ്പിച്ച സൈദ്ധാന്തികനാണ് വിടവാങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് ഹോൾഡ് വോയ്സ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കേരളത്തിലെ ബൌദ്ധിക മുഖമായിരുന്നു പി

സ്വാമി വിവേകാനന്ദന്റെയും മഹർഷി അരവിന്ദന്റെയും ദർശനങ്ങൾ മലയാളികളുടെ വായനക്ക് സുപരിചിതമാക്കിയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം

തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഓണേഴ്സിൽ സ്വർണമെഡലോടെ ബിരുദം പാസായി സ്വാമി ആഗമാനന്ദന്റെ ശിഷ്യനായി ശ്രീരാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു അദ്ദേഹം പിന്നീട് തിരുവനന്തപുരത്ത് വെച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകനായി

പത്തുവർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയാണ് കർഷകർക്ക് ലഭിക്കുന്നത്

എഫ് സി കെ എസ് ഐ

കേര്ള ്റ്റോർട്ടപ്പ് മിഷൻ സംഘടിപ്പിച്ച നിക്ഷേപക സംഗമമായ സീഡിംഗ് ് കേരള സമ്മേളനത്തിൽ ഐ ടി സെക്രട്ടറിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ബജറ്റിൽ പണം നീക്കി വച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

സമാപന സമ്മേളനം അവധൂതദത്താപീഠം മഠാധിപതി സ്വാമി ശ്രീ ശ്രീ ഗണപതി സച്ചിദാനന്ദ സരസ്വതി വൈകുന്നേരം മൂന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യും അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി അധ്യക്ഷത വഹിക്കും

നഴ്സറി ക്ലാസ് മുതൽ ഒമ്പതാം ക്സാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠനോത്സവത്തിൽ പങ്കെടുക്കും കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പഠനോത്സവത്തിന്റെ ആദ്യ പതിപ്പ് അരങ്ങേറിയത്

മന്ത്രിമാരും സാംസ്കാരിക നായകരും പങ്കെടുക്കുന്ന പൊതു പരിപാടികളും അരങ്ങേറും തൈക്കാട് ഭാരത് ഭവൻ അങ്കണത്തിലാണ് നാടകോത്സവം

ഇന്നലെ നടന്ന പെൺകുട്ടികളുടെ ഷോട്ട് പുട്ടിൽ കോഴിക്കോടിന്റെ ഡോണ മരിയ ഡോണി പുതിയ മീറ്റ് റിക്കാർഡ് കുറിച്ചു

സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഹോക്കി ഹരിയാനയും തമ്മിലാണ് കിരീടപ്പോരാട്ടം

ബംഗ്ലാദേശ് ആദ്യമായാണ് ഫൈനലിൽ പ്രവേശിക്കുന്നത്